ആലപ്പാട്ടെ കരിമണൽ ഖനന വിരുദ്ധ സമരസമിതിയുമായി മന്ത്രി ഇ

ജയരാജൻ ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും

എസ് ആർ ടി സി

ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ എൽ

നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് ഗവൺമെന്റ് പോലീസ്രാജ് നടപ്പാക്കുകയാണെന്ന് ബി

സംസ്ഥാന സെക്രട്ടറി എം

രമേശ്

റോഡ് വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സ്ഥലം ലഭ്യമാക്കുന്നതിന് ജനങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി ജി സുധാകരൻ ആലപ്പാട്ടെ കരിമണൽ ഖനന വിരുദ്ധ സമരസമിതിയുമായി ഗവൺമെന്റ് ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും മന്ത്രി ഇ

ജയരാജനെ ചർച്ചയ്ക്ക് ഗവൺമെന്റ് ഇന്നലെ ചുമതലപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്ത് ഇന്നലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചക്ക്ശേഷമാണ് തീരുമാനം ആലപ്പാട്ടെ ഖനനത്തിന്റെ പരിസ്ഥിതി ആഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും യോഗം തീരുമാനിച്ചു എന്നാൽ ഖനനം നിർത്തിവെച്ച് ചർച്ച വേണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും ശാസ്ത്രീയ ഖനനം തുടരു മെന്നും ഇന്നലത്തെ യോഗത്തിൽ ധാരണയിലെത്തിയിരുന്നു വൈകിട്ട് അഞ്ചി നാണ് ചർച്ച

എസ് ആർ

സി

ഇതേത്തുടർന്ന് ഇന്നലെ അർധരാത്രി തുടങ്ങാനിരുന്ന പണിമുടക്ക് ജീവനക്കാർ പിൻവലിച്ചു

ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ എൽ

നേതൃയോഗങ്ങൾ ഇന്ന് തീരുവനന്തപുരത്ത് ചേരും

കെ ജി സെന്ററിൽ ചേരുന്ന എൽ ഡി

യോഗം തിരഞ്ഞെടുപ്പിന് മുന്നോ ടിയായ സംസ്ഥാന മേഖലാ ജാഥകൾ സംബന്ധിച്ച് തീരുമാനമെടുത്തേക്കും മുന്നണി വിപുലീകരണത്തിന് ശേഷം ചേരുന്ന ആദ്യ നേതൃയോഗമാണ് ഇന്ന ത്തേത് രാവിലെ പത്തരയ്ക്ക് കന്റോൺമെന്റ് ഹൌസിലാണ് യു

തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ചർച്ചകളും പി

ജോർജിന്റെ മുന്നണി പ്രവേശനവും ചർച്ച ചെയ്യുമെന്നാണ് സൂചന

സകല രാഷ്ട്രീയ മര്യാദകളും കാറ്റിൽപറത്തി സമാനതകളില്ലാത്ത പോലീസ്രാജാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് ബി ജെ

സംസ്ഥാന സെക്ര ട്ടറി എം ടി രമേശ് കുറ്റപ്പെടുത്തി പത്തനംതിട്ടയിൽ എൻ ഡി എ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് അയ്യപ്പഭക്തരാണ് ഇന്നലെ ശബരിമല കയറാനെത്തിയ യുവതികളെ തടയാനുണ്ടാ യിരുന്നതെന്നും ഇവരിൽ ഏഴുപേരെ മാത്രം അറസ്റ്റ് ചെയ്തത് ഏതു നീതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പോലീസ് വ്യക്തമാക്കണമെന്നും രമേശ് ആവശ്യപ്പെ ട്ടു വിശ്വാസികളെ മാനിക്കാൻ സി

എം തയ്യാറാകണമെന്ന് ഒ രാജഗോ പാൽ എം എൽ എ ആവശ്യപ്പെട്ടു ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അവിശ്വാസി കൾ സംസാരിക്കുന്നത് ശരിയല്ലെന്നും കണ്ണൂരിൽ എൻ ഡി എ സംഘടിപ്പിച്ച ഉപ വാസസമരം ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ ജയിലുകളിൽ കഴിയുന്ന ബി ജെ

പ്രവർത്തകരെ ഒ രാജഗോപാൽ സന്ദർശിച്ചു ശബരിമല വിഷയത്തിൽ സെക്രട്ടറിയേറ്റിനുമുന്നിൽ ബി

അദ്ദേഹത്തിന്റെ സാന്നിധ്യ ത്തിലായിരിക്കും സന്നിധാനത്ത് ഈ ദിവസങ്ങളിലെ എല്ലാ ചടങ്ങുകളും നെയ്യഭി ഷേകം മറ്റന്നാൾവരെ തുടരും

ചങ്ങരങ്കുളത്ത് പൊതുയോഗത്തിൽ സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കലാപത്തിന് ആഹ്വാനം നൽകിയെന്ന് ആരോപിച്ച് യുത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇങ്ങോട്ട് ആക്രമിച്ചവരെ അതേ രീതിയിൽ തിരിച്ചും ആക്രമിച്ച് കണക്ക് തീർക്കണമെന്ന് കോടിയേരി പൊതുസമ്മേളനത്തിൽ പറഞ്ഞതായി കാണി ച്ചാണ് പരാതി ഈ പരാമർശം നിയമവിരുദ്ധവും അണികളെ അക്രമത്തിന് പ്രേരി പ്പിക്കുന്നതുമാണെന്ന് പരാതിയിൽ പറയുന്നു

ജെ പിയുടെ ഏതു വെല്ലുവിളി നേരിടാനും കേരളത്തിലെ ഇടതുമുന്നണി തയ്യാറാണെന്ന് സി

എം

ശബരിമലയിൽ സുപ്രീംകോടതിവിധി നടപ്പാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിച്ച് പ്രധാനമന്ത്രി കൊല്ലത്ത് നടത്തിയ പ്രസംഗം ഭരണഘടനാവിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്ന് അദ്ദേഹം തലശ്ശേ രിയിൽ പറഞ്ഞു ശബരിമല വിഷയത്തിൽ നിലപാടില്ലാത്തത് ബി ജെ പിക്കാ ണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി നിരീശ്വരവാദികളേയും രാജ്യവിരുദ്ധരേയും ആസൂത്രിതമായി കയറ്റി ശബരി മലയെ തകർക്കാനാണ് സി

എം ശ്രമിക്കുന്നതെന്ന് ബി

സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി ആരേയും ബലംപ്രയോഗിച്ച് കയറ്റാൻ കോടതി പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ തന്ത്രത്തിലൂടെ യുവതികളെ ശബരിമലയിൽ കയറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ശ്രീധ രൻപിള്ള ആരോപിച്ചു ശബരിമലയുടെ പേരിൽ സംഘർഷമുണ്ടാക്കുന്ന ബി

യും സി

എമ്മും ഭരണവിരുദ്ധത മറച്ചുവെക്കാൻ ഒത്തുകളിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് വിലയിരുത്തി ഇതോടെ പ്രളയവും വികസനവും കേരളത്തിന്റെ പുനർനിർമാണവും ചർച്ചയല്ലാതായി മാറിയെന്ന് സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തി

ഡി എഫിന് തികച്ചും അനുകൂലമാണ് സംസ്ഥാനത്തെ സാഹ ചര്യങ്ങളെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും സംസ്ഥാന കമ്മിറ്റി വിശ്വാസം പ്രകടിപ്പിച്ചു

പട്ടികജാതി പട്ടികവർഗ വികസന കോർപറേഷന്റെ പുതിയ വായ്പാ പദ്ധതി കൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന എട്ടുതരം വായ്പാ പദ്ധതിക ളാണ് കോർപറേഷൻ നടപ്പാക്കുന്നത്

ഫെബ്രുവരി ഏഴുവരെ സഭ സമ്മേളിക്കും

സംസ്ഥാനത്തെ റോഡ് പികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തി യാക്കാൻ സ്ഥലം ലഭ്യമാക്കുന്നതിന് ജനങ്ങൾ ഉത്സാഹിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ ആവശ്യപ്പെട്ടു റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം ലഭിക്കാ ത്തതാണ് പദ്ധതികൾ വൈകിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പാറശാലയിൽ പറഞ്ഞു തീരദേശ മലയോര ഹൈവേ പദ്ധതികളിൽ പതിനായിരം കോടി രൂപയുടെ റോഡ് വികസനം സംസ്ഥാനത്ത് നടക്കുകയാണെന്നും മന്ത്രി വെളിപ്പെടുത്തി പ്രളയകാലത്ത് തകർന്ന താമരശ്ശേരി ചുരത്തിലെ ചിപ്പിലിത്തോട് ഭാഗം അറ്റ കുറ്റപണികൾ തീർത്ത് പൂർണമായും ഗതാഗതയോഗൃമാക്കിയതായി മന്ത്രി ജി സുധാകരൻ അറിയിച്ചു

സംരക്ഷണ ഭിത്തിയും ബലപ്പെടുത്തി രണ്ട് കോടിയിൽത്താഴെ ചെലവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്

കാർഡി യോളജി വിഭാഗത്തിൽ കാത്തലാബ് നെഫ്രോളജി വിഭാഗത്തിൽ ഐ

പുതിയ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ നാലു പദ്ധതികൾക്ക് മന്ത്രി ഇന്നു തറക്കല്ലിടുകയും ചെയ്യും കർഷകരുടെ വായ്പ എഴുതിത്തള്ളി പലിശരഹിത പുനർവായ്പ അനുവദി ക്കണമെന്ന് യു ഡി

സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പുതിയ തായി അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇത്തരത്തിൽ വായ്പകൾ അനുവദിക്കുന്നുണ്ടെന്ന് തിരുവനന്തപുരത്ത്ചേർന്ന യോഗം വെളിപ്പെടുത്തി കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ കർഷകരെ വഞ്ചി ച്ചിരിക്കുകയാണെന്ന് യു ഡി എഫ് കുറ്റപ്പെടുത്തി രാജ്യത്തെ ദീർഘവീക്ഷണത്തോടെ നയിക്കാനുതകുന്ന ഗവൺമെന്റിനുവേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ് കാസർകോട്ട്നിന്ന് തൂടങ്ങുന്ന ജനഹിതയാ ത്രയെന്ന് ഷാഫി പറമ്പിൽ എം

അടുത്തമാസം മൂന്നിന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന യാത്രയുടെ സംഘാടകസ മിതി രൂപീകരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ആന്റണി ജനഹിതയാത്ര ഉദ്ഘാടനം ചെയ്യും കൊട്ടക്കാമ്പൂർ ഭൂമി ക്രയവിക്രയത്തിൽ പരാതിയില്ലെന്ന് കാണിച്ച് ഭൂമി വിറ്റ വർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി

കണ്ണൂരിൽനിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന ഒരാൾകൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ലഭിച്ചു കണ്ണൂർ സിറ്റിയിലെ അൻവർ എന്നയാളാണ് കൊല്ലപ്പെട്ടത് അമേ രിക്കൻ ബോംബാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ കൊറോസാനിൽ ഇയാൾ മരിച്ചതായാണ് വിവരം കണ്ണൂർ വിമാനത്താവളത്തിൽനിന്ന് അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ നടത്തുന്നതിനായി സ്പൈസ് ജെറ്റ് വിമാനക്കമ്പനി പ്രതിനിധികൾ കിയാൽ അധി കൃതരുമായി ചർച്ച നടത്തി ഉഡാൻ പദ്ധതിയിലുൾപ്പെടുത്തി സർവീസ് നടത്താനും കമ്പനിക്ക് ഉദ്ദേശമുണ്ടെന്നാണ് വിവരം

പ്രസ് ഇൻഫർമേഷൻബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശിൽപ്പശാല ഇന്ന് തലശ്ശേരിയിൽ നടക്കും റിപ്പോർട്ടിങ്ങിലെ നൂതന പ്രവണത കൾ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസെടുക്കും